ഇന്ത്യ സന്ദർശിക്കുന്ന ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇന്ന് ന്യൂഡൽഹിയിലെ ഗാന്ധിസ്മൃതി സന്ദർശിക്കും

സി യുടെ രണ്ട് ദിവസത്തെ പ്തീനറി യോഗം ഇന്ന് മുതൽ മേഘാലയയിലെ ഷില്ലോങിൽ നടക്കും

ഉത്തർപ്രദേശിലെ നോയിഡയിൽ സ്ഥിതി ചെയ്യുന്ന സാംസംഗ് ശാലയും ഇരുനേതാക്കളും സന്ദർശിക്കും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും

നാളെ അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ ്ആചാരപരമായ സ്വീകരണം നല്കും പ്രധാനമന്ത്രി മോദിയ്യുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ചയും നടത്തും

സി യുടെ രണ്ട് ദിവസത്തെ പ്തീനറി യോഗം ഇന്ന് മുതൽ മേഘാലയയിലെ ഷില്ലോങിൽ നടക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള മേഖലാ തല ആസൂത്രണ വിഭാഗമാണ് എൻ

കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മുഖ്യമന്ത്രിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും

ഇതിൽ എട്ട് ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി

ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ സ്വർണ്ണ ഭാരത് ട്രസ്റ്റിന്റെ സൌജന്യ വൈദ്യപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപ്തി സ്ത്രീ ശാക്തീകരണത്തിന് എല്ലാ അവസരങ്ങളും നല്ക്കണ്ണ്മെന്നും ലിംഗ വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറ്റഞ്ഞു് അതുപോലെ തന്നെ ജാതി വൃത്യാസമില്ലാതെ എല്ലാപ്പർും പരസ്പര സഹകരണത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവും പെൺ ഭ്രൂണഹത്യയുമാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ചില വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി ഇത്തരം ഹീന പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും അഭ്യർത്ഥിച്ചു

സി നെറ്റ് പരീക്ഷ രാജ്യവ്യാപകമായി ഇന്നലെ സി ബി എസ്

സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം കിംവദന്തികൾ പ്രചരിക്കുന്നത് തടയാൻ ശക്തമായ നടപടി ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തരവാദിത്തത്തോടെ സമൂഹ മാധ്യമങ്ങൾ പെരുമാറുന്നതിനും കിംവദന്തികളിൽ പെടാതിരിക്കാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിനും ഗവൺമെന്റ് ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

സുരക്ഷാസേനയുടെ തെരച്ചിൽ സംഘത്തെ ഒരു സംഘം അജ്ഞാതർ വനപ്രദേശത്ത് ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ

പഞ്ചാബിന്റെ പട്ടിഞ്ഞാറ്ൻ അതിർത്തിയിലെ ആക്രമണം നടക്കാൻ സാധ്യതയുള്ള പ്രദേശ്രങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം

വേദകാല സാഹിത്യത്തിൽ ചരിത്രം സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചയും നടക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു സംസ്കൃത ഭാഷയുടെ സംരക്ഷണം പ്രോത്സാഹനം ഉപയോഗം എന്നിവയ്ക്കായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു എല്ലാ മൂന്ന് വർഷവം കൂടുമ്പോഴും ലോകമാസകലമുള്ള രാജ്യങ്ങളിൽ മാറി മാറി സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട് ഇന്ത്യയിൽ ഇതുവരെ മൂന്നു പ്രാവശ്യം സമ്മേളനം നടന്നിട്ടുണ്ട്

ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്

ശേഷിക്കുന്ന എട്ട് കുട്ടികളേയും അവരുടെ പരിശീലകനേയും രക്ഷപെടുത്ത്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് പുനഃരാരംഭിക്കും നേരത്തെ ആറ് കുട്ടിക്ക്ളെ ്രക്ഷിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പ്പിയാങ് റായി ഗവർണർ അത് തിരുത്തി നാല് പേരെയാണ് രീക്ഷ്പ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്

ജേക്കബിന്റെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാല രാമപുരം സെന്റ് അഗസ്റ്റ്യൻസ് ഫെറോന പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം ശാരീരിക അസ്വാസ്ഥ്യത്തെത്തുടർന്ന് ഇന്നലെ രാവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

ഇന്നലെ രാമപുരത്തെ സ്വവസതിയിൽ പൊതുദർശനത്തിന് വച്ചിരുന്ന മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ ആദരാജ്ഞലി അർപ്പിച്ചു

ഇവരുടെ ബോട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട് അറേബ്യൻ കടലിലെ ഇന്ത്യൻ മേഖലയിലേക്ക് ഇവർ ബോട്ടിലെത്തുകയായിരുന്നുവെന്ന് ബി

ബോട്ടുകളും മത്സ്യബന്ധന ഉപാധികളും പിടിച്ചെടുത്തശേഷം മത്സ്യത്തൊഴിലാളികളെ പ്രാദേശിക ദയാപോർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി

ഇദ്ദേഹത്തിന് വേണ്ടി അനുയായികൾ സമർപ്പിച്ച ഹേബിയസ് കോർപസ് ഹർജിയിലാണ് ജഡ്ജി റൊഗേറിയോ ഫവ്രെതോ കഴിഞ്ഞ വെള്ളിയാഴ്ച ലുല ഡ സിൽവയെ ജയിൽ വിമുക്തനാക്കിയിരുന്നത് നിയമവിരുദ്ധമായാണ് ഇദ്ദേഹത്തെ തടങ്കലിലാക്കിയതെന്നായിരുന്നു ജഡ്ജി വാദിച്ചത് എന്നാൽ കോടതി വിധിയെ മറികടക്കാൻ റൊഗേറിയോ ഫവ്രെതോയ്ക്ക് അധികാരമില്ലെന്ന് ലുലയെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജയിലിലടച്ച അഴിമതി വിരുദ്ധ ജഡ്ജി സെർജിയോ മൊറോ വ്യക്തമാക്കി ഇതേതുടർന്ന് വീണ്ടും കേസ്ക്രപരിഗണിച്ച ജഡ്ജി ഗെബ്രാൻ നേതോ ലുലയെ തടങ്കലിലാക്കാൻ ഫെഡറൽ പൊലീസിന് നിർദ്ദേശം നല്കുകയായിരുന്നു

ബൾഗേറിയൻ അതിർത്തിയിലെ കാപ്പിക്കൂള്ലയിൽ നിന്നും ഇസ്താൻബൂളിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ്ട്രയിനിന്റെ ആറ് ബോഗികൾ പാളം തെറ്റുകയായിരുന്നുവെന്ന് തുർക്കി ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു

സ്െയിന്റ് പീറ്റേഴ്സ് ബർഗിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് ബെൽജിയത്തെ നേരിടും ബുധനാഴ്ചയാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യ പോരാട്ടം